കുറവ്

മലയാളി നഴ്സിന്റെ കൂടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വി

തിരുവനന്തപുരത്തും ലക്ഷദ്വീപിലും നാളെയും യെല്ലോ അലെർട്ട്

കോവിഡ് പകർച്ചവൃാധി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്രം സ്വീകരിച്ച നടപടികൾ കാബിനറ്റ് സെക്രട്ടറി വിശദീകരിച്ചു ആശുപത്രികൾക്ക് സമയബന്ധിതമായി ഓക്സിജനും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും നൽകുന്നതിൽ ഒരു തടസ്സമുണ്ടാകില്ലെന്നും ശ്രീ രാജീവ് ഗൌബ ഉറപ്പ് നൽകി

ഇത്തരം ജീവനക്കാരുടെ വിവരങ്ങൾ ഓഫീസ് മേധാവികൾ ജില്ലാ കളക്ടർക്ക് അടിയന്തിരമായി നൽകണം

ഇന്നലെ വൈകുന്നേരം ഹൈദരാബാദിൽ ചേർന്ന കൃാബിനറ്റ് യോഗത്തിനു ശേഷം തെലുങ്കാന സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു

മാധ്യമങ്ങൾ ബാങ്കുകൾ എന്നിവ പ്രവർത്തിക്കും

ലോക്ക്ഡൌൺ കർശനമായി നടപ്പാക്ക്ണ്മെന്നും സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ കോവിഡ് ചികിത്സക്കുള്ള ഓക്സിജൻ മരുന്നുകൾ എന്നിവ ലഭ്യമാക്കണമെന്നും സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് നിർദേശം നൽകി പ്രാദേശിക തലത്തിലുള്ള ചികിത്സ നിരീക്ഷിക്കാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ ജില്ലാ കളക്ടർമാർ ഡിഎംഒ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും കോവിഡ് വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടികളും തെലുങ്കാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്

കൊറിയൻ റിപ്പബ്ലിക് നൽകുന്ന പിന്തുണയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിരവധി രാജ്യങ്ങളാണ് ഇന്തൃയ്ക്ക് സഹായം ലഭ്യമാക്കിയത്

കോവിഡ് രണ്ടാം തരംഗിക് സംസ്ഥാനത്തിന്റെ ആരോഗൃ അടിസ്ഥാന സൌകരൃങ്ങളിലും ജനങ്ങൾക്കിടയിലും വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഓക്സിജനും ജീവൻരക്ഷാ മരുന്നുകളും ആവശ്യമായി വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണന്നും അദ്ദേഹം അറിയിച്ചു

ഇന്നലെ ഇടുക്കി കീരിത്തോട്ടിലുള്ള ഭർത്താവുമായി വീഡിയോകോളിൽ സംസാരിക്കുന്നതിനിടെ ഷെല്ലുകൾ സൌമൃയുടെ താമസ സ്ഥലത്ത് പതിക്കുകയായിരുന്നു മൃതദേഹം അഷ്കലോണിലെ ബെർസിലായി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്

തിരുവനന്തപുരത്ത് വൈകിട്ട് ആരംഭിച്ച ഇടിയോടു കൂടിയ മഴ ഇന്ന് പുലർച്ചെയും തുടർന്നു

തെക്കു കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ന് മുതൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചു

കോവിഡ് മഹാമാരി കാലത്ത് അക്ഷീണം പ്രയത്നിക്കുന്ന നഴ്സുമാരെ അഭിനന്ദിക്കുന്നതായും അവരോടുള്ള നന്ദി അറിയിക്കുന്നതായും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ട്വിറ്ററിൽ കുറിച്ച് കേന്ദ്ര മന്ത്രിമാരായ ഹർഷ് വർദ്ധൻ വി

നരേന്ദ്രമോദിയെ യു

ഇന്ത്യൻ സംഘത്തെ കേന്ദ്രസാമ്പത്തിക കാര്യ സെക്രട്ടറി അജയ് സേത്ത് നയിച്ചു സ്വിറ്റ്സർലൻഡിലെ പ്രതിനിധി സംഘത്തിന് ഫിനാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി ഡാനിയേല സ്റ്റോഫൽ നേതൃത്വം നൽകി നിക്ഷേപം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റി നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതിർത്തികൾക്കുപരിയായുള്ള ഫണ്ട് സാമ്പത്തിക സഹകരണം എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു

കോവിഡ് വ്യാപനത്തിന്റെയും ലോക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ പെരുന്നാൾ നമസ്ക്കാരം വീടുകളിലാകും നടക്കുക ഈദ് ആഘോഷത്തോടൊപ്പം മഹാമാരിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായുള്ള സാന്ത്യന പ്രവർത്തനങ്ങളിലും വിശ്വാസികൾ സജീവമാകും

ഇറച്ചിക്കടകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കാനായി പരമാവധി ഡോർ ഡെലിവറി പ്രോത്സാഹിപ്പിച്ച് അതിനാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യണം

ഇതു ലംഘിക്കുന്നു